നയം കൊണ്ടുവരുമെന്ന് കേന്ദ്രം

ഇന്തൃയുടെ നിഖാത് സെറീനും ശിവ താപയും കാർട്ടർ ഫൈനലിലേക്ക്

താഴ്വരയിൽ വൻ തോതിൽ നിക്ഷേപം ആകർഷിക്കുന്നതിനാണ് നടപടിയെന്ന് കേന്ദ്രമന്ത്രി സോം പ്രകാശ് പറഞ്ഞു വ്യാപാരി വ്യവസായി പ്രതിനിധികളുമായി ഇന്നലെ ജമ്മുവിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി രാഷ്ട്രീയ സാമ്പത്തിക കാരണങ്ങളാൽ ജമ്മുകശ്മീരിൽ വ്യവസായ രംഗത്തെ വികസനം പ്രതിസന്ധിയിലാണെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി മുഴുവൻ ജീവനക്കാരും വനിതകളായ പോസ്റ്റ്ഓഫീസ് ഇന്നലെ ശ്രീനഗറിൽ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജമ്മുകശ്മീരിൽ യുവാക്കളെ ഉൾപ്പെടുത്തി സർവതല വികസനമാണ് ഗവൺമെന്റ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

രവിശങ്കർ പ്രസാദ് പറഞ്ഞു

പട്ടികയിലെ ആവർത്തനങ്ങൾ അവ്യക്തത പുതിയ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തൽ തുടങ്ങിയവ പരിശോധിക്കാൻ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിലും മാറ്റം വരുത്തി കേന്ദ്രഭരണ പ്രദേശമായ ദാദ്രനാഗർ ഹവേലി ദാമൻ ദിയൂവിന്റെ തലസ്ഥാനം ദാമൻ ആയിരിക്കുമെന്നും തീരുമാനിച്ചിട്ടുണ്ട് ദാദ്രനാഗർ ഹവേലി ദാമൻ ദിയു എന്നിവ ഒന്നാക്കിയതിനെ തുടർന്ന് ചരക്ക് സേവന നികുതി മൂല്യ വർദ്ധിത നികുതി എക്സൈസ് നികുതി എന്നിവയിൽ ഭേദഗതിക്കും മന്ത്രിസഭായോഗം അംഗീകാരം നല്കി

ഇക്കുറി വൈകിട്ട് ആറിനാണ് മൻ കീ ബാത്ത് പ്രക്ഷേപണം

വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രിമാർ പൊതു പരിപാടികളിലും പങ്കെടുക്കും

കേന്ദ്രഭരണ പ്രദേശമായ ഗവൺമെന്റ് കൊണ്ടുവന്ന വിവിധ ക്ഷേമ വികസന പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് സന്ദർശനം

അമേരിക്ക ഹോങ്കോങ് മക്കാവു മെക്സിമോ എന്നിവിടങ്ങളിലാണ് നേരത്തെ കൊറോണ വൈറസ് രോഗം കണ്ടെത്തിയത് ചൈനീസ് നഗരമായ വുഹാനിൽ പൊതുഗതാഗതം ഉൾപ്പെടെ നിർത്തി രോഗം പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നു

പുതിയ വൈറസ് ബാധയിൽ ആഗോള തലത്തിൽ ഏർടിയന്തിര സാഹചര്യവും പ്രഖ്യാപിക്കേണ്ട അവസ്ഥ ഇപ്പോഴിക്ട്ലെന്ന് ലോകാരോഗ്യ സംഘടന യുടെ അടിയന്തിര യോഗം വിലയ്ടിരുത്തി

ഡൽഹി മുംബൈ ചെന്നൈ കൊച്ചി ഹൈദരാബാദ് ബെംഗളൂരു കൊൽക്കത്ത എന്നിവിടങ്ങളിലെ ഏഴ് വിമാനത്താവളങ്ങളിലാണ് പരിശോധന നടത്തിയത്

ഗവൺമെന്റ് ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും മൻകരുതൽ നടപടികൾ് ശക്തമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ചൈനയിൽ നിന്ന് എത്തിയവർ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ അടുത്തുള്ള പൊതുജനാരോഗ്യ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യണം അവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ എംബസി ആരോഗ്യ മന്ത്രാലയത്തിന് നൽകുന്നുണ്ടെന്ന് ആരോഗൃ സെക്രട്ടറി പറഞ്ഞു

ചൈന സന്ദർശിക്കുമ്പോൾ മുൻകരുതൽ നടപടികൾ പാലിക്കാൻ പൌരന്മാരോട് ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു ഇക്കാരൃം അവലോകനം ചെയ്യാൻ ആരോഗ്യ സെക്രട്ടറി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുത്പ്

പി നദ്ദ ഇന്ന് ഉത്തർപ്രദേശിൽ പൌരത്വ ഭേദഗതി ന്നിയമത്തിന്റെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും

പൊതുയോഗങ്ങളും ചർച്ചകളും സംഘടിപ്പിച്ച് ബിജെപിച്ചു പ്രവർത്തകർ സംസ്ഥാനത്ത് പ്രചാരണം സജീവമാക്കിയതായി ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബിജെപി സംഘടിപ്പിക്കുന്ന ആറാമത്തെ വലിയ പൊതുസ്മ്മേളനമാണിത്

വാരണാസി ഗോരഖ്പൂർ ലഖ്നൌ മീറ്റ്റ് കാൺപൂർ എന്നിവിടങ്ങളിൽ നേരത്തെ പ്രചാരണ പരിപാടികൾ നടത്തിയിരുന്നു

നിരവധി പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തി

റെയിൽവേ റോഡ് ഗതാഗതം ദേശീയപാതകൾ പെട്രോളിയം പ്രകൃതിവാതകം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് കാലതാമസം നേരിടുന്ന പദ്ധതികൾ പ്രധാൻമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന പ്രധാൻമന്ത്രി രക്ഷാ ഭീമ യോജന എന്നീ ഇൻഷുറൻസ് പദ്ധതികളുടെ പുരോഗതിയും യോഗത്തിൽ ശ്രീ മോദി അവലോകനം ചെയ്തു ഇ ഗവേണൻസിലൂടെ ഫലപ്രദമായ പൊലീസിങ്ങിനായുള്ള സമഗ്ര സംയോജിത സംവിധാനമായ ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിങ് നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ് പ്രോജക്ടിന്റെ പുരോഗതിയും പ്രധാനമന്ത്രി വിലയിരുത്തി

ജമ്മു കശ്മീരിന് പുറത്ത് യാത്ര ചെയ്യാൻ ഭീകരരെ സഹായിക്കാൻ ശ്രമിച്ചതിനാണ് ദേവിന്ദർ സിംഗ് അറസ്റ്റിലായത് ദേവിന്ദർ സിങ്ങിന്റെ ബംഗ്ലാദേശ് സന്ദർശനങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ദിൽബാഗ് സിംഗ് തിങ്കളാഴ്ച വൃക്തമാക്കിയിരുന്നു

പണം തട്ടിയെടുത്തിരും വധശ്രമത്തിനുമാണ് ഇയാളെ അറസ്റ്റു ചെയ്തത്

ഇവയിലും അറസ്റ്റുണ്ടാകും

ഉപഭോക്തൃ സൌഹാർദ്ദപരമായ നടപടിയാണിതെന്ന് ട്രായ് അഭിഭാഷകൻ വെങ്കടേഷ് ധോന്ദ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞു പുതിയ ചട്ടങ്ങൾ യുക്തി രഹിതമാണെന്ന് ആരോപിച്ച് ടെലിവിഷൻ സംപ്രേഷകർ സമർപ്പിച്ച നിരവധി ഹർജികൾ ജസ്റ്റിസുമാരായ എസ്

മുമ്പത്തെ റെഗുലേറ്ററി ചട്ടക്കൂടിന്റെ വൃവസ്ഥകൾ പ്രക്ഷേപകരും വിതരണ പ്താറ്റ് ഫോം ഓപ്പറേറ്റർമാരും ദുരുപയോഗം ചെയ്യുന്നുവെന്ന് റെഗുലേറ്ററി അതോറിറ്റി പറഞ്ഞു

ഒരു റിപ്പോർട്ട്

ഒരു പന്ത് ബാക്കി നിൽക്കേ ഏഴ് വിക്കറ്റ് നഷ്ടപ്പെടുത്തി ന്യൂസിലന്റ് ലക്ഷ്യം കണ്ടു

മുൻ സ്വർണ്ണ മെഡൽ ജേതാവായ സെവ്ദ അസിനോവയെയാണ് സറീൻ കീഴടക്കിയത് വിഭാഗത്തിൽ പോളണ്ടിന്റെ പാവേൽ പോളോ കോവികിനെയാണ് ശിവ് താപ തോൽപ്പിച്ചത്